എം സംസ്ഥാനത്ത് അതിശക്തമായ കാലവർഷം കനത്ത മഴ യിലും കാറ്റിലും വൻ നാശനഷ്ടം വയനാട്ടിലും അട്ടപ്പാടി യിലുമായി രണ്ടുസ്ത്രീകൾ മരിച്ചു സ്ഥിതിഗതികൾ വിലയി രുത്താൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു

ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഗയാനയിൽ സ്വർണവിലയിലെ കുതിപ്പ് തുടരുന്നു

സംസ്ഥാനത്ത് അതിശക്തമായ കാലവർഷം വടക്കൻ ജില്ല കളിലും മധ്യകേരളത്തിലും കനത്ത മഴയും കാറ്റും തുടരുകയാ ണ് മലയോര മേഖലയിലും സമതലങ്ങളിലും മഴയിലും കാറ്റിലും പരക്കെ നാശനഷ്ടമുണ്ടായി കോഴിക്കോട് കണ്ണൂർവയനാട് മല പ്പുറം പാലക്കാട് ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി

വടക്കൻ കേരളത്തിലെ മലയോര മേഖ ലകളിൽ പലയിടത്തും ഉരുൾപൊട്ടി നിരവധി കുടുംബങ്ങളെ സുര ക്ഷിതസ്ഥലങ്ങളിലേക്ക് മാറ്റിപാർപ്പിച്ചു ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അതി തീവ്ര മഴയ്ക്ക് സാധ്യ തയെന്ന മുന്ന റിയിപ്പിനെ തുടർന്ന് റെഡ് അലർട്ട്പ്രഖ്യാപിച്ചിരുന്നു കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു തടസ്സം നീക്കാൻ നടപടികൾ തുടരുക യാണ്

മാവൂരിൽ മരം വീണ് കോഴിക്കോട്ടേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു

ഇരുവഞ്ഞിപ്പുഴ നിറഞ്ഞൊഴുകി തിരുവമ്പാടി മുക്കം റോഡിലും ഗതാഗതം സ്തംഭിച്ചു മുക്കം ചേന്ദമംഗല്ലൂരിലും വെള്ളംകയറിയിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിൽ പരക്കെ ശക്ത മായ മഴ പെയ്യുകയാണ്

കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരന്തനിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം തുടങ്ങി

വിവിധ വകുപ്പ് തലവൻമാർ പങ്കെടുക്കുന്നുണ്ട് വയനാട്ടിൽ നാല് ദിവസമായി തുടരുന്ന മഴയ്ക്ക് ഇന്നും ശമ നമായില്ല പുഴകളും തോടുകളും നിറഞ്ഞ് കവിഞ്ഞു

മാനന്തവാടി പനമരം വള്ളൂർക്കാവ് റോഡിൽ വെള്ളംകയറി കല്പറ്റ മാനന്തവാടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു മാനന്തവാടി തലശ്ശേരി റോഡിലെ തലപ്പുഴ എസ് വളവിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വയനാട്ടിൽ ദുരിതാശ്ചാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനിടെ യുവതി കുഴഞ്ഞ് വീണ് മരിച്ചു

കനത്ത മഴയെ തുടർന്ന് നിലമ്പൂരിൽ വെള്ളപ്പൊക്കം നിലമ്പൂർ ടൌണും പരിസരപ്രദേശങ്ങളുമാണ് വെള്ളത്തിൽമുങ്ങിയത് ടൌണിലെ പ്രധാന റോഡുകൾ വെള്ളത്തിനടിയിലാണ് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിത്തുടങ്ങി വ്യാപാരസ്ഥാപ നങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഒന്നാംനില പൂർണമായും വെള്ളത്തിനടിയിലാണ് പല വീടുകളും വെള്ളത്തിൽ മുങ്ങി ഇന്നലെ രാത്രി മുതൽ നിലമ്പൂരിലും സമീപപ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നു കൂടാതെ വനമേഖലയിൽ പലയിടത്തും ഉരുൾപൊട്ടലു ണ്ടായി ഓരോനിമിഷവും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും പലയിടങ്ങളിൽനിന്നും ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ വിസമ്മതിക്കുന്നതായാണ് വിവരം ചാലിയാറും കരിമ്പുഴയും പുന്നപ്പുഴയും കരകവിഞ്ഞു

ആളുകളോട് ടൌണുകളിലേക്ക് എത്തരുന്നതെന്ന് പൊലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെട്ടിടങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരെ മലപ്പുറം പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി ക്കൊണ്ടിരിക്കുകയാണ്

ഇവിടെ രക്ഷാ പ്രവർത്തനം തുടരുകയാണ് വഴിക്കടവ് വനാന്തർഭാഗത്തെ പുഞ്ചകൊല്ലി അളക്കൽ ആദിവാസി കോളനിയിൽ രക്ഷാപ്രവർത്ത കർക്ക് തടസ്സമായി കോരൻ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ് വന പാതയിൽ വൻ ഗർത്തം രൂപം കൊണ്ടു നാടുകാണി ചുരം അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിലിനെത്തുടർന്ന് സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ചു കനത്ത മഴയെത്തുടർന്ന് വെള്ളത്തിലായ നിലമ്പൂരിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് സി ഐ സുനിൽ പുളിക്കൽ അറിയിച്ചു ടൌണിലും പരിസരങ്ങളിലും ജലനിരപ്പ് ഉയരുകയാണ് കരുളായിയിൽ ഉരുൾപൊട്ടിയതും വെള്ളം ഉയരാൻ കാരണമായി

രക്ഷാപ്രവർത്തനം കാണാൻ ആളുകൾ തടിച്ചുകൂടരുതെന്ന് പൊലീസ് അറിയിച്ചു പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി മേഖലയിലാണ് മഴ ശക്തമായി തുടരുന്നത് ഭവാനി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് നിരവധി പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഷോളയൂർ പുതൂർ അഗളി പഞ്ചായത്തുകളിലാണ് മഴ കൂടുതൽ നാശം വിതച്ചത്

മൂന്ന് പഞ്ചായത്തുകളിലും വിദ്യാഭ്യാസ സ്ഥാപങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്

ഇരിട്ടി താലൂക്കിലെ കേളകം പൊലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ചപ്പമല പനച്ചിക്കൽതോട് അടക്കാത്തോട് എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി തളിപ്പറമ്പ് താലൂക്ക് ഇരിക്കൂർ വില്ലേജിൽ കാർട്ടേഴ്സിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങളെ അൽ മദ്രസ്സത്തുൽ ഇസ്ലാമിയയിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇരിട്ടി മേഖലയിൽ പലയിടത്തും വെള്ളം കയറി നാശ നഷ്ടങ്ങൾ ഉണ്ടായി

ഇരിട്ടി പാലംപണിക്കുവേണ്ടി കൊണ്ടു വന്ന ക്രെയിൻ ട്രാക്ടർ അടക്കം വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ ആണ് കനത്ത മഴയെ തുടർന്ന് കോളിക്കടവിലും വീടുകൾ വെള്ളത്തിൽ മുങ്ങി

ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൽ മണികണ്ഠൻചാൽ സി

ഐ ചർച്ചിൽ ദുരിതാ ശ്വാസക്യാമ്പ് തുറന്നു അഞ്ച് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഒന്നര മീറ്റർ ഉയരാൻ സാധ്യത യുണ്ടെന്നും തീരവാസികൾ ജാഗ്രത പുലർത്തണമെന്നും അധി കൃതർ അറിയിച്ചു

മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യ ത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലും താമ സിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു കൊല്ലം കടയ്ക്കൽ ഐരക്കുഴിയിൽ കാറ്റത്ത് റോഡിൽ മരം വീണ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു

അഗ്നിസുരക്ഷാസേ നയെത്തി മരം മുറിച്ച് നീക്കംചെയ്ത് മടത്തറ കടയ്ക്കൽ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു

വൃഷ്ടിപ്രദേശങ്ങ ളിൽ കനത്ത മഴ ലഭിക്കുന്നതിനാൽ അണക്കെട്ടുകളിലേക്ക് നീരൊ ഴുക്ക് വർധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴയെതുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപു രത്ത് യോഗം ചേർന്നു റവന്യൂമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യ മില്ലെന്ന് യോഗം വിലയിരുത്തി ദുരിതാശ്വാസപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗ മായി ദേശീയ ദുരന്തനിവാരണ സേനയുടെ സഹായം തേടിയിട്ടു ണ്ട്

നാളെ മുതൽ മഴയുടെ ശക്തികുറയുമെന്ന് കാലാവസ്ഥാനിരീ ക്ഷണകേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മഴയെതുടർന്ന് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ പ്രതി പക്ഷനേതാവ് രമേശ് ചെന്നിത്തലയുടെ കാസർകോട്ടെ എല്ലാ പരി പാടികളും റദ്ദ് ചെയ്തു പെരിയ കല്യോട്ടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു പ്രധാന പരിപാടി പുതുക്കിയ തിയ്യതി പിന്നീട് അറിയിക്കും

രാംലല്ലയുടെ വാദമാണ് അഞ്ചംഗ ഭരണഘടനാബെഞ്ച് പരിഗണിക്കുന്നത് ദശലക്ഷക്കണ ക്കിന് ഭക്തരുടെ ഇളക്കംതട്ടാത്ത വിശ്വാസം തന്നെയാണ് തർക്ക സ്ഥലം ഉൾപ്പെടുന്ന അയോധ്യ രാമജന്മഭൂമിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് രാംലല്ലയ്ക്കുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ പരാശരൻ വാദിച്ചു

വി രമണ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു

ടെലിഫോൺ ഇന്റർനെറ്റ് ന്യൂസ് ചാനൽ സേവനങ്ങൾ പിൻവലിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ഹർജിക്കാരൻ അറി യിച്ചു തടവിൽ കഴിയുന്ന മുൻമുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി തുടങ്ങിയവരെ മോചിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ഏകദിനക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം ലോകകപ്പ് സെമിയിലേറ്റ തോൽവിക്കുശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ഏകദിനത്തിനിറങ്ങുന്നത് ആദ്യ മത്സ രത്തിൽ ഗയാനയിലെ പ്രോവിഡൻസിൽ ഓപ്പണർ ശിഖർധവാന്റെ തിരിച്ചുവരവാണ് ശ്രദ്ധേയം രാത്രി ഏഴിനാണ് മത്സരം സ്വർണവില റെക്കോർഡ് കുതിപ്പ് തുടരുന്നു

നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി മരണക്കേസിൽ പ്രതിയായ എസ് ഐ കെ എസ് ബാബു സമർപ്പിച്ച ജാമ്യാപേക്ഷ ഹൈക്കോ ടതി ഇന്ന് വീണ്ടും പരിഗണിക്കും

പി അടക്കം ഉന്നത ഉദ്യോ ഗസ്ഥർ അറിഞ്ഞാണ് രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തതെന്നും ജയിലിലെത്തിക്കുന്നതുവരെ പരിക്ക് ഉണ്ടായിരുന്നില്ലെന്നുമാണ് എസ്

രാജ്കുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മെഡിക്കൽ രേഖകളും ഇന്ന് ഹാജരാ ക്കാൻ ഹൈക്കോടതി ഗവൺമെന്റിന് നിർദേശം നൽകിയിട്ടുണ്ട്